രാമകൃഷ്ണൻ

ങ്ങ ൽ വൃക്തിവിവര സംരക്ഷണ ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു

വൃക്തികളുടെ നിർണായക വിവരങ്ങൾ ഇന്റർനെറ്റ് കമ്പനികൾ രാജ്യത്തിനകത്ത് തന്നെ സൂക്ഷിക്കണമെന്നത് ബില്ലിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പൌരത്വ ഭേദഗതി ബിൽ ഭരണഘ ടനയുടെ ആത്മാവാണെന്ന് ബിജെപി വിവരിച്ചു അനധികൃത കുടി യേറ്റക്കാരിലൂടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇതിനെ എതിർക്കുന്നതെന്ന് പാർട്ടി വക്താവ് ജി

നരസിംഹറാവു ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യത്തിന്റെ അടിസ്ഥാന ആശയം തന്നെ ലംഘിക്കുന്നതാണ് ബില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഉൾപ്പെടെ നിരവധി പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെട്ടു

മതവുമായി ബന്ധപ്പെടുത്തി പൌരത്വം തീരുമാനിക്കരുതെന്നും ബിൽ ഭരണഘ ടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും ബില്ലിനെതിരെ രംഗത്ത് വന്നു മുസ്തീങ്ങളല്ലാത്ത കുടിയേറ്റക്കാർക്ക് പൌരത്വം നൽകാൻ വൃവസ്ഥ ചെയ്യുന്ന പൌരത്വ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയ കേന്ദ്ര ഗവൺമെന്റ് നടപടി മതേതരത്വം ഉദ്ഘോഷിക്കുന്ന രാജൃത്തിന് നാണക്കേടാണെന്ന് മുസ്തീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

മജീദ് കോഴിക്കോട്ട് പറഞ്ഞു

പാർലമെന്റ് സമ്മേളനത്തിനു ശേഷം ജി

സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തുക ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി പഞ്ചാബ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ മന്ത്രിമാരും കേരളത്തിനുവേണ്ടി ഗവൺമെന്റിന്റെ പ്രത്യേക പ്രതിനിധി എ സമ്പത്തും ഇന്നലെ നിർമലാ സീതാരാമനെ കണ്ടിരുന്നു ഐഎൻഎക്സ് മീഡിയ കേസിൽ സുപ്രീം കോട്ടതി ജാമൃം അനു വദിച്ചതിനെ തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര മന്ത്രിയുമായിരുന്നു പി ചിദംബരം ജയിൽ മോചിതനായി

ഇന്ന് മാധൃമങ്ങളെ കാണുമെന്നും അദ്ദേഹം അറി യിച്ചു റിസർവ് ബാങ്ക് അഞ്ചാം ദ്വൈമാസ വായ്പാ നയം ഇന്ന് പ്രഖ്യാപിക്കും സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ തുടർച്ചയായ ആറാം തവണയും പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

യെദിയൂരപ്പ നയിക്കുന്ന ബിജെപി ഗവൺമെന്റിന് തെര ഞ്ഞെടുപ്പ് ഫലം നിർണായകമാകും ഭൂരിപക്ഷം നിലനിർത്താൻ ആറ് മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമാ ണ് മയക്കുമരുന്നടക്കം ലഹരി പദാർത്ഥങ്ങളുടെ മാരക വിപത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കുകയെന്ന മഹാദൌത്യത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാ ളി ത്ത മു ണ്ടാ ക ണ മെ ന്ന് മ ്രന്തി ടി

രാമകൃഷ്ണൻ പറഞ്ഞു

ലഹരിവിരുദ്ധ ബോധവത്ക്കരണപ്രവർത്തനങ്ങളിലെ ബഹുജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചാര ണജാഥയും സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിക്കുന്നത്

തൃപ്പൂണിത്തുറ പേട്ടയിൽ കൊച്ചി സിറ്റി ഗൃാസ് ലൈൻ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി പാചകവാതകം ചോർന്നു കൊച്ചി മെട്രോ യുടെ പൈലിംഗ് ജോലി നടക്കുന്നതിനിടയിൽ ഇന്നലെ വൈകീട്ടാണ് സംഭവം

കേരളാ ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നാളെ വിളിച്ചുചേർത്ത യോഗം ബഹിഷ്ക്കരിക്കാൻ യുഡിഎഫ് തീരുമാനിച്ചു റിസർവ് ബാങ്ക് തത്തിൽ അനുവാദം നൽകിയതിനൊപ്പം നിർദേശിച്ച വൃവസ്ഥകൾ ഒന്ന് പോലും പാലി ക്കാതെയാണ് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് സഹകരണവേദി ചെയർമാൻ കർകുളം കൃഷ്ണപിള്ള തിരുവനന്ത പുരത്ത് പറഞ്ഞു

സാങ്കേതിക സർവ്വകലാശാലാ അദാലത്തിൽ പങ്കെടുത്തത് അനു ചിതമാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ

ജലീലിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു എത്ര ഗുരു തരമായ തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി യുടെ അതേ പാതയിലാണ് മന്ത്രിയും എംജി സർവ്വകലാശാലാ വൈസ് ചാൻസലറും പിഎസ്സി ചെയർമാനും മുന്നോട്ട് പോകുന്നതെന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി

അഖിലിന്റെ വേർപാടിൽ മുഖൃമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ഇൻഡോ ടിബറ്റൻ പൊലീസ് കൃാമ്പിൽ വെടി യേറ്റു മരിച്ച കോഴിക്കോട് പേരാമ്പ്രയിലെ വിജിഷീന്റെ നിര്യാണ ത്തിലും മുഖൃമന്ത്രി അനുശോചനം അറിയിച്ചു കാഠ്മണ്ഡുവിൽ ദക്ഷിണേഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഒന്നാമതെത്തി

വനിതകളുടെ ലോംഗ് ജംപിൽ മലയാളി താരം സാന്ദ്ര ബാബു വെങ്കലവും നേടി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റിയെ നേരിടും

ഉഡുപ്പി മണിപ്പാൽ സർവകലാശാലയിൽ നടക്കുന്ന ദക്ഷിണമേഖലാ ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടറിൽ അണ്ണാ സർവകലാശാലയെ പരാജയപ്പെടുത്തിയാണ് കാലിക്കറ്റ് യോഗ്യത നേടിയത് ഇന്ന് രാവിലെ നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിൽ കാലിക്കറ്റ് എസ്ആർഎം സർവകലാശാലയെ നേരിടും കണ്ണൂരിൽ നടക്കുന്ന നാലാമത് ദേശീയ വനിത ബോക്സിംഗിൽ കേരള താരം കെ

ഇന്ന് അഞ്ജു സാബു നിസ്സി ലൈസി തമ്പി അൻസുമോൾ ബെന്നി ശീതൾ ഷാജി പി

അനശ്വര എന്നിവർ മത്സരത്തിനിറങ്ങും

ബോണക്കാട് എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഗവൺ മെന്റ് മുൻകൈ യ്യെ ടു ക്കു മെന്ന് മ ്രന്തി ടി

ബോണക്കാട് എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് മാനേജ്മെന്റ് കൊടുത്തു തീർക്കാ നുള്ള കൂലി ഉൾപ്പെടെ തിട്ടപ്പെടുത്തുന്നതിനായി നടപടി സ്വീകരിക്ക ണമെന്നും മന്ത്രി പറഞ്ഞു കയർ വ്യവസായത്തിന്റെ ഉന്നമനത്തിന് ഭൂവസ്ത്ര നിർമിതിയിലൂന്നിയ വിപണന ത്രന്തം ആവിഷ്കരിക്കണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ആലപ്പുഴയിൽ കയർ കേരളയുടെ ഭാഗമായ കയർ രണ്ടാം പുനഃസംഘടനയും നേട്ടങ്ങളും ഭാവി ്വഴികളും സഹകരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ് ദേശീയ അവാർഡെന്ന് മന്ത്രി കെ

കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾക്കുള്ള അംഗീകാരം കൂടിയാണ് അവാർഡെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു

മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിലമ്പൂർ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലങ്ങളിലെ വിവിധ പരിപാടികളിൽ സംബന്ധിച്ച ശേഷം വൈകീട്ടോടെ അദ്ദേഹം വയനാട്ടിലേക്ക് പോകും സ്കൂളിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ബത്തേരിയിലെ ഷഹല ഷെറിന്റെ വീടും സർവജന സ്കൂളും നാളെ രാഹുൽ സന്ദർശിക്കും മറ്റന്നാൾ വൈകീട്ട് അദ്ദേഹം കണ്ണൂരിൽ നിന്നും ഡൽഹിക്ക് മടങ്ങും

രാജേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ശുചിത്വ ഭാരതം സ്ത്രീ ശാക്തീകരണം യോഗ ജൻധൻ യോജ ന സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകളെടുക്കും

മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രളയ പുനരുദ്ധാരണത്തിനായി സൃംസ്ഥാന ഗവൺമെന്റ് ആവിഷ് കരിച്ച റീ ബിൽഡ് കേരള പദ്ധതിയിൽ മലപ്പുറം ജില്ലയെ പൂർണ്ണമായും തഴഞ്ഞ നടപടി രാഷട്രീയ വിവേചനവും പകപോക്കലുമാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മറ്റി ആരോപിച്ചു

കോഴിക്കോട് ജില്ലാ കേരളോത്സവത്തിന്റെ ഭാഗമായ കായിക മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും

എറണാകുളം ജില്ലാ കേരളോത്സവം ഇന്നാരംഭിക്കും മൂന്ന് ദിവ സത്തെ പരിപാടി ടി

വിനോദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ഹിൽവ്യൂ പാർക്കിൽ അഞ്ച് പുതിയ അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾ തുടങ്ങാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ജനറൽബോഡി യോഗം തീരുമാനിച്ചു

ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മഹാകവി അക്കിത്തത്തെ ജന്മ നാട് ആദരിച്ചു തപസ്യ കുമരനെല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് മിസോറാം ഗവർണർ പി

ശ്രീധർൻപിള്ള ഉദ്ഘാ ടനം ചെയ്തു മഹാകവി അക്കിത്തത്തിന്റെ പുരസ്കാരലബ്ധിക്കെ തിരെ കേരളത്തിൽ ശബ്ദമുയർന്നു എന്നത് ദുഖവും വേദനയും ആശ്ചര്യവുമുണ്ടാക്കിയെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു ലഹരി വിപത്തു തടയാൻ പ്രതിരോധവും കരുതലും കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്ന് ജയിൽ വകുപ്പ് ഡി